മുഴുവൻ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ്റൂമുള്ള ആദ്യ സംസ്ഥാനമായി കേരളം പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു

അതിവേഗ ട്രെയിനുകളിലെ എല്ലാ നോൺ എസി കോച്ചുകളും ഏ സി ആക്കാൻ റെയിൽവേ തീരുമാനം

സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട ജി എസ് ടി നഷ്ടപരിഹാരം സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്യും കേന്ദ്ര ധനകാര്യ സഹമന്ത്രി അനുരാഗ് താക്കൂർ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനമന്ത്രിമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും ജി എസ് ടി നടപ്പിലാക്കിയിൽ കൊണ്ടോ കോവിഡ് സാഹചര്യങ്ങൾ മൂലമോ സംസ്ഥിന്റങ്ങൾക്ക് ജി എസ് ടി വരുമാനത്തിൽ ഉണ്ടായ കുറവ് പ്പൂർണ്ണമായും നികത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമല സീതാരാമൻ കഴിഞ്ഞ യോഗത്തിൽ ഉറപ്പുനൽകിയിരുന്നു ആർക്കും നഷ്ടപരിഹാരം നിഷേധിക്കില്ലെന്ന് ശ്രീമതി നിർമല സീതാരാ്മൻ അറിയിച്ചു

ഇതനുസരിച്ച് ആർ ബി

പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച വനിതയായിരുന്നു വിജയ രാജ സിന്ധ്യയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ഇരുരാജ്യങ്ങളിലെയും കമാൻഡർ തലത്തിലെ സൈനചശ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചർച്ച കിഴക്കൻ ലഡാക്കിലെ ചുഷുളിലാണ് നടക്കുന്നത്

ഈ വർഷം ഏപ്രിൽ മെയ് മാസം മുതൽ തുടങ്ങിയ സംഘർഷാവസ്ഥ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ചർച്ചു

കിഴക്കൻ ലഡാക്ക് സെക്ടറിൽ നിന്നും ചൈനീസ് സൈനൃത്തെ പൂർണമായും പിൻവലിക്കണമെന്നും അതിക്രമിച്ചു കയറിയ സ്ഥലത്ത് നിന്നും പിൻവാങ്ങണമെന്നും ചർച്ചയിൽ ഇന്ത്യ ആവശ്യപ്പെടും ചില പോയിന്റുകളെ കുറിച്ചു മാത്രമേ ചർച്ച ചെയ്യേണ്ടതുള്ളു എന്ന നിലപാടിലാണ് ചൈന എന്നാൽ മേഖലയിലെ തർക്കമുള്ള എല്ലാ സ്ഥലത്തെ കുറിച്ചും പ്രത്യേകം ചർച്ച ചെയ്യണമെന്ന നിലപാടും ഇന്ത്യ മുന്നോട്ടുവെക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു തെക്ക് വടക്കൻ പാങ്കോംഗ് തടാക പ്രദേശങ്ങളിൽ ചൈനീസ് സൈന്യം അതിക്രമിച്ച് കയറിയ പോയിന്റുകൾ ഇന്ത്യ തിരിച്ചുപിടിച്ചിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് നടന്ന ചൈനയുടെ ഭാഗത്തെ വിലയിരുത്തൽ യോഗത്തിന് ശേഷം ഇന്ത്യ നിലപാട് ശക്തമാക്കിയിട്ടുണ്ട്

സംഘർഷാവസ്ഥ പരിഹരിക്കാനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സേനാമേധാവികൾ അടക്കമുള്ളവരും വിഷയത്തിൽ ഇടപെട്ട് വരികയാണ്

പാലങ്ങളുടെ നിർമാണം അതിവേഗം പൂർത്തിയാക്കിയ ബി ആർ ഓ യെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു ലഡാക് അരുണാചൽ പ്രദേശ് സിക്കിം ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലെ അതിർത്തി മേഖലയിലാണ് ബി ആർ ഒ പാലങ്ങൾ നിർമ്മിച്ചത്

പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ നേതൃത്വത്തിൽ ബഹിരാകാശ വകുപ്പിൽ ചരിത്രപരമായ പരിഷ്കാരങ്ങളാണ് നടക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് സ്വകാര്യമേഖലയെ ബഹിരാകാശ യാത്രയ്ക്കും ഗ്രഹ പര്യവേക്ഷണത്തിനും അനുവദിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

കോവിഡ് ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരെ അനുവദിക്കുന്നതിന് പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും നിലവില്ലാത്ത സാഹചര്യത്തിലാണ് ആശുപത്രി സൂപ്രണ്ടുമാർക്ക് നിർദേശം നൽകിയത് കോവിഡ് ബോർഡിന്റെ നിർദേശാനുസരണം സൂപ്രണ്ടുമാർ പരിചരണം ഉറപ്പാക്കാനുള്ള ക്രമീകരണം നടത്തേണ്ടതാണെന്നും മന്ത്രി വൃക്തമാക്കി

സഞ്ചരിക്കുന്ന എല്ലാ മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിലും നിലവിലുള്ള സ്ത്രീപ്പർ കോച്ചുകൾ തന്നെയായിരിക്കും റെയിൽവേ ശൃംഖലയെ അതിവേഗ ശേഷിയുള്ളതാക്കാനുള്ള വൻ പദ്ധതികളാണ് റെയിൽവേ നടപ്പാക്കുന്നത്

സിയുടെ മുഖ്യപരിശീലകനായിരുന്നു

ശ്രീനഗർ നഗരത്തിലെ റാംബാഗ് പ്രദേശത്താണ് സുംഭവം